ടി ടി വി ദിനകരന്റെ തെരഞ്ഞെട്ടുപ്പ് ഓഫീസിൽ നിന്ന് ഒന്നര കോടി രൂപയുടെ ക്ള്ളപ്പണം പിടിച്ചു വെല്ലൂർ മണ്ഡലത്തിലെ തെരുള്ളെയ്പ്പ് റദ്ദ് ചെയ്തു

തുടരുന്നു

ഐ

എല്ലിൽ ഇന്ന് ഹൈദരാബാദ് ചെന്നൈ പോരാട്ടം

ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള പൊതുസമ്മേളനങ്ങളും റാലികളും പുരോഗമിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് വയനാട്ടിൽ പ്രചാരണം നടത്തുന്നു രാവിലെ കണ്ണൂരിൽ എത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി രാവിലെ യുഡിഎഫ് നേതൃയോഗത്തിൽ പങ്കെടുത്തു കാർഷിക പ്രതിസന്ധി അഴിമതി സാമ്പത്തിക അസമത്വം എന്നിവയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫല്ലൂത്ത് സ്വാധീനിക്കുക എന്ന് ശ്രീ

രാഹുൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയശേഷം സുൽത്താൻബത്തേരി സ്പെന്റ് മേരീസ് ഗ്രൌണ്ടിൽ പൊതുയോഗത്തിൽ സംസാരിച്ചു വയനാട്ടിട്ട് പ്ര്യചാരണ പരിപാടികൾക്കുശേഷം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പാലക്കാട് ജില്ലയിലെ ചാലുശ്ശേരി എന്നിവിടങ്ങളിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കും വൈകിട്ടോടെ അദ്ദേഹം കോയമ്പത്തൂർ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങും എൻഡിഎ സ്ഥാനാർഥി പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തും വൈകിട്ട് തിരുവനന്തപുരും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രചാരണ റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ ഇന്ന് കോഴിക്കോട്ടെത്തും കേന്ദ്രമന്ത്രി താവർചന്ദ് ഗഹ്ലോട്ട് ഇന്ന് കണ്ണൂരിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു

ഉത്തർപ്രദേശിലെ ആഗ്ര ഫത്തേപൂർ സിക്രി അമ്രോഹ ബുലന്ദ്ശഹർ നഗിത ഹത്രസ് അലിഗഡ് മഥുര എന്നീ മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ് ബീഹാറിലെ കതിനാൽ ഉൾപ്പെടെയുള്ള അഞ്ച് ലോക്സഭാ സീറ്റുകളിലും ഛത്തീസ്ഗഢിലെ മൂന്നു മണ്ഡലങ്ങളായ കാങ്കർ മഹാസമുദ് രാജ്നദ്ഗാവ് എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട്ടിലെ എല്ലാ സീറ്റുകളിലും പണത്തിന്റെ സ്വാധീനം പരിശോധിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മിഷൻ പ്രത്യേകം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്

ഹസൻ മാണ്ഡിയ തുംകുരു ബംഗളൂരു റൂറൽ എന്നീ പ്രശ്നബാധിത മണ്ഡലങ്ങളിൽ കൂടുതൽ പൊലസിനെ വിന്യസിച്ചിട്ടുള്ളതായി പൊലീസ് മേധാവികൾ അറിയിച്ചു

ബിജെപിയുടെ സിറ്റിംഗ് എം പി പ്രീതം മുണ്ടെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അശോക് ചവാൻ മുൻമുഖ്യമന്ത്രി സുശീൽകുമാർ ഷിന്റെ മഹാഗദ്ബന്ധൻ നവനീത്രാണ എന്നിവരാണ് മത്സരിക്കുന്ന പ്രമുഖർ

സ്ഥാനാർത്ഥി കനിമൊഴിയുടെ വസതിയിൽ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് അധികൃതർ റെയ്ഡ് നടത്തി തൂത്തുക്കുടിയിലെ വസതിയിൽ ഇന്നലെ രാത്രി പത്തോളം വരുന്ന ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത് രണ്ടു മണിക്കൂറോളം ഇത് നീണ്ടുനിന്നു സംഭവത്തെ ഡി

ഇവർ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രമുഖ ബി ജെ

നേതാവായ സ്ഥാനാർത്ഥിയുടെ വസതി റെയ്ഡ് ചെയ്യാത്തതെന്നും അദ്ദേഹം ചോദിച്ചു

ടി

ദിനകരൻ നേതൃത്വം നൽകുന്ന എ

നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ തേനി ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്നതാണ് ആണ്ടിപ്പട്ടി മണ്ഡലം വൻ കള്ളപ്പണ ശേഖരണം കണ്ടെത്തിയതിനെതുടർന്ന് വെല്ലൂരിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു

മധുബനി ലോക്സഭാ മണ്ഡലത്തിൽ ഷക്കീൽ അഹമ്മദും സരൺ മണ്ഡലത്തിൽ ബി ജെ

നാളെയാണ് അഞ്ചാം ഘട്ടത്തിലേക്ക് പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ബീഹാറിലെ സീതാമഢി മധുബനി മുസാഫർപൂർ സരൺ ഹാജിപുർ എന്നീ അഞ്ചു ലോക്സഭാ മണ്ഡലങ്ങളിൽ അടുത്ത മാസം ആറിനാണ് വോട്ടെടുപ്പ്

വികസന രംഗത്തുണ്ടായ പുരോഗതി ലോകരാജൃങ്ങൾ പോലും അംഗീകരിച്ചതാണെന്ന് മന്ത്രി പറഞ്ഞു അമേഠിയിലെ പരാജയഭീതിയാണ് വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽഗാന്ധിഉയി പ്രേരിപ്പിച്ചതെന്നും ഗഹ്ലോട്ട് പറഞ്ഞു

ഐ

ആർ ഫയൽ ചെയ്തിരിക്കുന്നത് തുടർനടപടികൾക്കായി സിദ്ധുവിന്റെ പ്രസംഗം അടങ്ങുന്ന റിപ്പോർട്ടും സി ഡിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചതായി അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കുമാർ അറിയിച്ചു

ജെ

നിലവിലെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവെകൾ സൂചിപ്പിക്കുന്നത്

ഇന്ത്യക്കും യു എസിനും ശേഷം ഏറ്റവും വലിയ ജനാധിപത്യരാജ്യമാണ് ഇൻഡോനേഷ്യ

ജനങ്ങൾ നേരിട്ട് വോട്ടു ചെയ്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം കൂടിയാണ് ഇന്തോനേഷ്യ

ജൈനമത വിശ്വാസ പ്രകാരം പരമ്പരയിലെ അവസാന തീർത്ഥങ്കരനാണ് മഹാവീരൻ ആഘോഷങ്ങളോടനുബന്ധിച്ച് വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥനയും പ്രസാദ വിതരണവും ഘോഷയാത്രയും നടത്തും

സമൂഹത്തിൽ സമാധാനം സാഹോദര്യം അഹിംസ സഹവർത്തിത്വം എന്നീ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മികച്ച സംഭാവന നൽകിയ ഭഗവാൻ മഹാവീർ ഭാരതത്തിന്റെ തിള്ങ്ങുന്ന പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

പടിഞ്ഞാറൻ ഭാഗത്ത് രൂപം കൊണ്ട അന്തരീക്ഷ സമ്മർദ്ദമാണ് മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുതിർന്ന ഉദ്യോഗസ്ഥൻ ഡോ

ജമ്മുകാശ്മീർ പഞ്ചാബ് ഹരിയാന ഡൽഹി ഹിമാചൽപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുള്ളതായി അറിയിപ്പുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ചൂടിന് മഴ ആശ്വാസമായി ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഇന്നു മഴയ്ക്ക് സാധ്യതയുണ്ട്

കമ്പനിക്ക് വായ്പ നൽകിയവരുടെ കമ്മിറ്റിയാണ് ഈ തീരുമാനമെടുത്തത്

സി

സി

കമ്പനിയുടെ വായ്പ തീർപ്പാക്കാനുള്ള സമയപരിധി അവസാനിച്ചതിനാൽ ഇനിയും കാത്തിരിക്കാനാവില്ലെന്ന് നിലപാടെടുക്കുകയായിരുന്നു